ഐ

വിദ്യാർത്ഥികളെ പ്രധാന മന്ത്രി ആഹ്വാനം ചെയ്തു

കേരളത്തിലെ മഴക്കെട്ടുതികൾ തുടരുന്നു

വിയറ്റ്നാം ഓപ്പൺ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ പുരുഷ സിംഗിൾ വിഭാഗത്തിൽ ഇന്ത്യയുടെ അജയ് ജയറാം മിഥുൻ മഞ്ജുനാഥ് എന്നിവർ ഇന്ന് മത്സരിക്കും

ഐ

റ്റിയിൽ നിന്ന് പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾ ലോകത്തിന്റെ സാ്ങ്കേതിക മാനവ വിഭവശേഷിൽ ഇന്ത്യയെ മുന്നിലെത്തിക്കുണ്ട്മെന്ന് പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടു ഇന്ത്യയെ ആഗോള ബ്രാ്ന്റാക്കുന്നതിൽ ഐ ഐ

സാങ്കേതികവിദ്യ ഉപയോഗിച്ച് സുശക്ത രാഷ്ട്രം കെട്ടിപ്പെടുക്കുന്നതിൽ രാജ്യത്തെ ഐ ഐ

രാജ്യത്ത് പുതിയ എഞ്ചിനീയറിംഗ് കോളേജുകൾ സ്ഥാപിക്കുന്നതിൽ ഐ ഐ റ്റികളും അവിടെ നിന്ന് പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികളും സഹായകമാണെന്നും അദ്ദേഹം പറഞ്ഞു

ഐ റ്റിയുടെ എഞ്ചിനീയറിംഗ് എനർജി സയൻസ് വകുപ്പിന്റെ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനവും പ്രധാനമന്ത്രി നിർവ്വഹിച്ചു

കേരളം തമിഴ്നാട് കർണ്ണാടക ഗുജറാത്ത് മഹാരാഷ്ട്ര ആന്ധ്രാപ്രദേശ് ഒഡീഷ പശ്ചിമബംഗാൾ ഗോവ എന്നീ സംസ്ഥാനങ്ങൾക്കു പുറമേ ലക്ഷദ്വീപിലും ആൻ്റമാൻ നിക്കോബാർ ദ്വീപിലും കടൽ കരയിലേക്ക് ആഞ്ഞടിക്കും കേരളത്തിന്റെ തെക്കൻ ജില്ലകളിൽ മഴക്ക് ഇന്ന് നേരിയ ശമനമുണ്ടെ ങ്കിലും മധ്യകേരളത്തിലും ഉത്തരകേരളത്തിലും ദുരിതം തുടരുകയാണ് സംസ്ഥാനത്തെ മഴക്കെടുതി വിലയിരുത്താൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിങ് നാളെ കൊച്ചിയിലെത്തും

കർണ്ണാടകയിൽ കനത്ത മഴ തുടരുന്നതിനാൽ ഒരു ലക്ഷം ക്യൂസെസ് ജലം കാവേരി നദിയിലേക്ക് ഒഴുക്കി വിടുന്നതിനാലാണ് ജാഗ്രത നിർദ്ദേശം നൽകിയിട്ടുള്ളത് കർണ്ണാടകയിലെ കബനി കെ ആർ എസ് ഡാമുകളിൽ നിന്ന് തുറന്നുവിടുന്ന അധിക ജലം ഉച്ചയോടെ സേലം ജില്ലയിലെ മേട്ടൂർ ഡാമിൽ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് കേന്ദ്ര ജല കമ്മീഷൻ വ്യക്തമാക്കി കൃഷ്ണഗിരി ധർമ്മപുരി സേലം ഈറോഡ് തിരുച്ചിറപ്പള്ളി തഞ്ചാവൂർ എന്നിവിടങ്ങളിലെ ജില്ലാ കളക്ടർമാർ ജനങ്ങൾക്ക് ജാഗ്രത നിർദ്ദേശം നൽകിയിട്ടുണ്ട്

ന്യൂഡൽഹിയിൽ പറഞ്ഞു ബില്ലിനോട് കേന്ദ്ര ഗവൺമെന്റ് അനുഭാവ പൂർണമായ നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത് മുത്തലാഖ് ബില്ലിൽ ഗവൺമെന്റ് രാഷ്ട്രീയം കാണുന്നില്ല പ്രതിപക്ഷത്തിന്റെ സമീപനം കാരണമാണ് ബിൽ പാസാക്കാൻ കഴിയാത്തത്

രാജ്യക്ഷാ മൂന്തി നിർമ്മല സീതാരാമനും ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും ചേർന്നാണ് ഉദ്ഘാടനം നിർവ്വഹിച്ചത്

ഇന്നു ഉച്ചയ്ക്കുശേഷം നടക്കുന്ന ചടങ്ങിൽ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും ഐ

വകുപ്പ് മന്ത്രിമാരും പങ്കെടുക്കും

ബൽതാൽ പഹൽഗാം പരമ്പരാഗത പാതവഴിയാണ് സ്ംഘം യാത്ര നടത്തുക

സുപ്രധാന നിയമ നിർമ്മാണങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച സമ്മേളനം കഴിഞ്ഞ രണ്ടു ദശകത്തിനിടെ നടന്ന സമ്മേളനങ്ങളിൽ ഏറ്റവും ഫലപ്രദമാണെന്നാണ് പാർലമെന്റ് സെക്രട്ടേറിയേറ്റ് സാക്ഷ്യപ്പെടുത്തുന്നത് ലോക്സഭയിൽ പ്രതിപക്ഷത്തിന്റെ അവിശ്വാസ പ്രമേയം പരാജയപ്പെടുന്നതിനും രാജ്യസഭ ശ്ലപാധ്യക്ഷനായി ഹരിവംശ് തെരഞ്ഞെടുക്കപ്പെടുന്നതിനും ഈ സമ്മേള്റ്റ് സാക്ഷിയായി കൂടുതൽ വിവരങ്ങളുമായി ബിന്ദു

സി

ഇന്നലെ പരിഗണിക്കാനാകുമെന്ന് കരുതിയിയെങ്കിലും മുത്തലാഖ് ബിൽ രാജ്യസഭ ചർച്ചയ്ക്കെടുത്തില്ല വിദേശ ഇന്ത്യക്കാർക്കും പകരക്കാരെ ഉപയോഗിച്ച് വോട്ട് രേഖപ്പെടുത്താനാകുന്ന ബില്ലും രാജ്യസഭ പാസാക്കിയിരുന്നു ക്രിമിനൽ നിയമ ഭേദഗതി പട്ടികജാതി പട്ടിക വർഗ്ഗ അതിക്രമ നിരോധന ഭേദഗതി സാമ്പത്തിക കുറ്റകൃതൃം തടയൽ കുട്ടികൾക്ക് സൌജന്യ വിദ്യാഭ്യാസം ഉറപ്പാക്കൽ ഭേദഗതി ബില്ലുകളും പാസാക്കിയവയിൽ ഉൾപ്പെടുന്നു

സമ്മേളനവുമായി സഹകരിച്ചതിന് പ്രതിപക്ഷത്തിന് ഗവൺമെന്റ് നന്ദി അറിയിച്ചു ന്യൂസ് ഡെസ്ക് ആകാശവാണി

സ്വാതന്ത്യൂപ്പിന്നത്തിൽ ഇതിനുള്ള അനുമതി നൽകാൻ ഗവർണർ ആനന്ദിബ്ലെൻ പെട്ടേൽ നിർദ്ദേശം നൽകി അന്നേ ദിവസം സ്വാതന്ത്ര്യസമര സ്നേജാനികളുടെ ഛായാചിത്രങ്ങൾ കൊണ്ട് രാജ്ഭവൻ പ്രത്യേകം ഭൂഅല്ക്കരിക്കുമെന്ന് ആകാശവാണി ലേഖകൻ റിപ്പോർട്ട് ചെയ്യുന്നു

അടുത്ത ജനറൽ അസംബ്ലി സമ്മേളനത്തിൽ മുൻഗണന നൽകാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ അവർ പ്രധാനമന്ത്രിയുമായി പങ്കു വെച്ചു

ഇസ്താമാബാദിലുള്ള വസതിയിൽ ആയിരുന്നു കൂടിക്കാഴ്ച തീവ്രവാദം അതിർത്തി പ്രദേശങ്ങളിലെ നുഴഞ്ഞു കയറ്റം എന്നീ വിഷയങ്ങളിൽ ഇരുവരും ചർച്ച നടത്തിയതായി ശ്രീ ബിസാരിയ ട്വിറ്ററിൽ കൂറിച്ചു

തെ്ഫ്റ്ര്ീക് ഇ ഇൻസാഫ് പാർട്ടി സെൻട്രൽ അഡീഷണൽ ഇൻഫർമേഷൻ സെക്രട്ടറി ഫൈസൽ ജാവേദ് ഖാൻ ഇസ്ലാമാബാദിൽ വ്യക്തമാക്കിയതാണ് ഇക്കാര്യം ഇന്ത്യൻ ക്രിക്കറ്റ് താരങ്ങളായ സുനിൽ ഗവാസ്കർ കപിൽദേവ് നവ്ജോത് സിങ് സിദ്ദു എന്നിവരെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുക്കാൻ ക്ഷണിച്ചതായും അദ്ദേഹം അറിയിച്ചു

മരിച്ചവരെ തിരിച്ചറിയാനുള്ള ശ്രമങ്ങൾ തുടരുന്നതായി പോലീസ് അറിയിച്ചു

പ്രമുഖ തർപ്പണ കേന്ദ്രങ്ങളായ തിരുവനന്തപുരത്തെ പാപനാശം തിരുവല്ലം വയനാട്ടിലെ തിരുനെല്ലി മലപ്പുറത്തെ തിരുനാവായ എന്നിവിടങ്ങളിൽ നിരവധിപേർ ബലിതർപ്പണം നടത്തി മണപ്പുറം മുഴുവൻ വെള്ളത്തിൽ ക്ട് മൂങ്ങിയതിനെ തുടർന്ന് ആലുവ ശിവരാത്രി മണപ്പുറത്ത് ഇിക്കുറി പതിവു രീതിയിലുള്ള ബലി തർപ്പണ ചടങ്ങ് നടന്നില്ല പ്ലകർം മണപ്പുറത്തിന് സമീപമുള്ള റോഡിലാണ് ബലിയിടൽ ചട്ടങ്ങുകൾ നടക്കുന്നത്

അജയ് ജയറാം ജപ്പാന്റെ യു ഇഗറാഷിയെയും മിഥുൻ ഇന്തോനേഷ്യയുടെ ഷെസാർ ഹിമൻ റുസ്റ്റാവിറ്റോയേയും നേരിടും

ലോകസംഘടനയുടെ ഔദ്യോഗിക ഭാഷകളിൽ ഒന്നായി ഹിന്ദിയെ മാറ്റാനുള്ള ശ്രമങ്ങൾ ഗവൺമെന്റ് നടത്തുന്നതായി അവർ ന്യൂഡൽഹിയിൽ വാർത്താലേഖകരോട് പറഞ്ഞു

ഐക്യരാഷ്ട്ര സഭ ഹിന്ദി ട്വിറ്റർ അക്കൌണ്ടും ആരഭിച്ചിട്ടുണ്ട്